ഭരണ പരിചയവും ഉള്ളവരെന്റ് പ്രിയാനമന്ത്രി നരേന്ദ്രമോദി ജമ്മുകാശ്മീരിലെ ഷോപ്പിയാനിൽ സുരക്ഷ സേന രണ്ട് ന് ഭീകരരെ വധിച്ചു

കേസിലെ മുഖ്യപ്രതി ഡി

ഐയ്ക്ക് മുന്നിൽ കീഴടങ്ങി

സ്കൂൾ ക്യാമ്പസുകൾ പുകയില മുക്ത പ്രദേശമായി പ്രഖ്യാപിക്കാൻ തീരുമാനം

പാർലമെന്റ് ചേരുന്ന തീയതി സംബന്ധിച്ചും ഇന്ന് തീരുമാനമെടുക്കും അടുത്ത പാർലമെന്റ് സമ്മേളനത്തിൽ പുതിയ ലോക്സഭാംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും

പ്രുതിയ മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച തീരുമാനുവും മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായേക്കുമെന്നാണ് സൂചന്റു

നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള രണ്ടാമത് മന്ത്രിസഭ ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു രാഷ്ട്രപതി ഭവനിൽ നടന്ന പ്രൌഢഗംഭീര ചടങ്ങിലാണ് ശ്രീ നരേന്ദ്രമോദിയും മന്ത്രിസഭാംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്

മുതിർന്ന ബി ജെ

വി മുരളീധരൻ മാത്രമാണ് കേരളത്തിൽ നിന്നുള്ള മന്ത്രിസഭാ അംഗം

നിലവിൽ മഹാരാഷ്ട്രയിൽ നിന്നുള്ള രാജ്യസഭാ അംഗമാണ്

നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭയിൽ രാജ്നാഥ് സിംഗ് നിതിൻ ഗഡ്കരി നിർമ്മലാ സീതാരാമൻ രാംവിലാസ് പാസ്വാൻ നരേന്ദ്രസിംഗ് തോമർ രവിശങ്കർ പ്രസാദ് സ്മൃതി ഇറാനി പ്രകാശ് ജാവദേക്കർ തുടങ്ങിയവർ അംഗങ്ങളാണ്

ജെ പി അധ്യക്ഷൻ അമിത് ഷായും മൂൻ പ്രിദേശകാര്യ സെക്രട്ടറി ഡോ

മുതിർന്ന പത്ത് ക്യാബിനറ്റ് മൂന്ത്രിമാരെ പുതിയ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ആരോഗ്യപ്രെ് ്വേൾ ചൂണ്ടിക്കാട്ടി അരുൺ ജയ്റ്റ്ലി തന്നെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശൃപ്പെട്ടിരുന്നു ബിംസ്റ്റക്ക് രാഷ്ട്ര തലവൻമാരും വിദേശ നയതന്ത്രജ്ഞരും വിവിധ സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ മുഖ്യമന്ത്രിമാർ പ്രതിപക്ഷനേതാക്കൾ വ്യാവസായിക തലവൻമാർ സിനിമാതാരങ്ങൾ തുടങ്ങിയവരും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു ശ്രീലങ്കമൃാൻമാർ ബംഗ്ലാദേശ് ഭൂട്ടാൻ നേപ്പാൾ കിർഗ് റിപ്പബ്ലിക് മൌറീഷ്യസ് എന്നീ രാജ്യങ്ങളുടെ തലവൻമാർ സന്നിഹിതരായിരുന്നു പ്രതിപക്ഷത്തു നിന്നും യു

എ അധ്യക്ഷ സോണിയാഗാന്ധി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി സമാജ് വാദി പാർട്ടി നേതാവ് മുലായം സിംങ് യാദവ് എന്നിവർ പങ്കെടുത്തു മന്ത്രിസഭ പുതുമുഖം തുടർച്ചയായ രണ്ടാംതവണയും പ്രധാനമന്ത്രിയായി അധികാരമേറ്റ നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിൽ പരിചയസമ്പന്നർക്കൊപ്പം ഒട്ടേറെ പുതുമുഖങ്ങളും

ജെ പി അധ്യക്ഷൻ അമിത് ഷാ മുൻവിദേശകാര്യ സെക്രട്ടറി എസ്

സംസ്ഥാനത്തുനിന്നുള്ള പി

തന്റെ മന്ത്രിസഭയിലെ പുതുമുഖങ്ങൾ യുവത്വത്തിന്റെ ഊർജ്ജസ്വലതയും ഭർണ്ച്രിചയം ഉള്ളവരാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമങ്ങളിലൂടെ അറിയിച്ചു

കഴിഞ്ഞ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന നിർമ്മലാ സീതാരാമൻ ഹസിമ്രത്ത് കൌർ ബാദൽ സ്മൃതി ഇറാനി എന്നിവർ ഇക്കുറിയും ക്യാബിനറ്റ് പദവി ലഭിച്ചു സഹമന്ത്രിമാരായി സാധ്വി നിരഞ്ജൻ ജ്യോതി രേണുകാ സിംഗ് ദേബോശ്രീ ചൌദരി എന്നിവരും സത്യപ്രതിജ്ഞ ചെയ്തു

മുരളീധരൻ ഇൻട്രോ കേരളത്തിലെ ജനങ്ങൾ നേരിടുന്ന പ്രിക്സന പ്രശ്നങ്ങൾക്കും ജീവിത പ്രതിസന്ധികൾക്കും പരിഹാരം കണ്ടെത്താനുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തുമെന്ന് കേന്ദ്ര സഹ്മന്തിയായി ചുമതലയേറ്റ ശ്രീ

മുരളീധരൻ ആകാശവാണ് പ്രാർത്തകളോട് പറഞ്ഞു

മുൻ കേന്ദ്രമന്ത്രിയും എട്ടു തവണ എം പിയുമായ മനേക ഗാന്ധി ബി ജെ പിയുടെ മുതിർന്ന നേതാവാണ് ഉഭയകക്ഷി ചർച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രീലങ്കൻ പ്രസിഡന്റ് മൈത്രിപാല സിരിസേനയുമായി ന്യൂഡൽഹിയിലെ ഹൈദരാബാദ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തി

ഇന്നലെ സത്യപ്രിതിജ്ഞയ്ക്കു ശേഷം കിർഗ് റിപ്പബ്ലിക്ക് പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു

കോൺഗ്രസാണ് തെരഞ്ഞെടുപ്പിലെ പ്രതിപക്ഷത്തിന്റെ പരാജയകാരണം വിലയിരുത്താനായി യോഗം വിളിച്ചിരുന്നത് പാർലമെന്റ് സമ്മേളനത്തിൽ സ്വീകരിക്കേണ്ട നിലപാടും യോഗത്തിൽ ചർച്ച ചെയ്യാൻ തീരുമാനിച്ചിരുന്നു ചില നേതാക്കളുടെ അസൌകര്യം മൂലമാണ് യോഗം മാറ്റിയതെന്നാണ് സൂചന ജമ്മുകാശ്മീർ ജമ്മുകാശ്മീരിലെ ഷോപ്പിയാനിൽ സുരക്ഷസേനയും ഭീകരവാദികളും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ രണ്ടു തീവ്രവാദികൾ കൊല്ലപ്പെട്ടു ഇവരെ തിരിച്ചറിഞ്ഞിട്ടില്ല ഇന്ന് പുലർച്ചെയാണ് ഏറ്റുമുട്ടൽ ആരംഭിച്ചത് ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുകയാണ്

സ്ഥലത്തു നിന്നും ആയുധങ്ങളും കണ്ടെടുത്തിട്ടുണ്ട് സ്വർണ്ണക്കടത്ത് തിരുവനന്തപുരം വിമാനത്താവളം വഴി സ്വർണ്ണം കടത്തിയ കേസിലെ പ്രധാനപ്രതി അഭിഭാഷകനായ എം ബിജു കൊച്ചിയിലെ ഡയറക്ട്രേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസിന് മുന്നിൽ കീഴടങ്ങി മുൻപ് ബിജുവിന്റെ ജാമ്യ ഹർജി പരിഗണിച്ചപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ കീഴടങ്ങാമെന്ന് ബിജുവിന്റെ അഭിഭാഷകൻ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു

പുകയിലയും ശ്വാസകോശ ആരോഗ്യവും എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ ആശയം

രവീന്ദ്രനാഥിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടന്ന യോഗത്തിലാണ് തീരുമാനം സ്കൂൾ കൃാമ്പസിന്റെ പരിസരങ്ങളിൽ പോലീസിന്റെയും എക്സൈസിന്റെയും നിരന്തരമായ നിരീക്ഷണമുണ്ടാകും

ടി ഐ കലോത്സവത്തിന് ഇന്നലെ കൊല്ലത്ത് തുടക്കമായി മന്ത്രി ജെ

കൂടുതൽ വിവരങ്ങളുമായി കൊല്ലത്തു നിന്നും ആകാശവാണി പ്രതിനിധി നീരജ്ലാൽ

ടി

ടിഐകളുടെ പശ്ചാത്തല സൌകര്യ വികസനം കൂടി ഗവൺമെന്റ് ലക്ഷ്യമിടുന്നതായി മന്ത്രി പറഞ്ഞു

വിരമിക്കൽ ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലെ മുതിർന്ന ഏതാനും പ്രക്ഷേപകർ ഇന്ന് ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുന്നു മൂന്നു പതിറ്റാണ്ട് ആകാശവാണി വാർത്താ അവതാരകയായ സുഷമ വയലും വീടും പരിപാടിയിലൂടെ ഗ്രാമീണ്ണൂ കർഷകർക്ക് അറിവിന്റെ വെളിച്ചം പകർന്ന മുരളീധരൻ തഴക്കരു എന്നിവരും ആകാശവാണി പത്തനംതിട്ട പ്രതിനിധി ബിജി വർഗ്ഗ്ലീസ്റ്റ്മാണ് ഇന്ന് വിരമിക്കുന്നത്